കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്തംബർ മാസങ്ങളിൽ ഇതിനായി ഒട്ടേറെ നടപടി കൾ ഗവൺമെന്റ് കൈക്കൊണ്ടിട്ടുണ്ടെന്ന് ധനമന്ത്രി ന്യൂഡൽഹിയിൽ പറ ഞ്ഞു

വളർച്ചാനിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് നടപടി എടു ത്തുവരികയാണെന്നും നിർമല സീതാരാമൻ പറഞ്ഞു വ്യവസായ മേഖല യിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് തുടരുമെന്നും ധനമന്ത്രി പറ ഞ്ഞു ചരക്ക് സേവന നികുതി നിരക്കുകളിൽ മാറ്റംവരുത്തുന്നകാര്യം ജി

പൊതു മേഖലാ ബാങ്കുകളുടെ മേധാവികളുമായി ധനമന്ത്രി ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തും

സംസ്ഥാനത്തെ മെഗാ കൈത്തറി ക്ലസ്റ്ററിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നിർദ്ദേ ശവും കേന്ദ്ര ഗവൺമെന്റിന്റെ പക്കലില്ലെന്ന് രാഹുൽഗാന്ധിയുടെ ചോദ്യ ത്തിന് ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ അവർ വ്യക്ത മാക്കി രുട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ അന്തിമ റിപ്പോർട്ട് പുറപ്പെടുവിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറിന് ഡീൻ കുര്യാക്കോസ് എം പി കത്ത് നൽകി കേരളത്തിന്റെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ശാസ്ത്രീയ മായി കണ്ടെത്തി സംസ്ഥാനത്തിന് മാത്രമായി പ്രത്യേക അന്തിമ വിജ്ഞാ പനം വേണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു രദ്ദേഷ്ടങ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ജിദ്ദയിലേക്കും ദമാ മിലേക്കും എയർ ഇന്ത്യയുടെ വൈഡ് ബോഡി എയർക്രാഫ്റ്റിന്റെ പ്രവർ ത്തനം ആരംഭിക്കണമെന്ന് എം പി മാരുടെ സംഘം ന്യൂഡൽഹിയിൽ സിവിൽ ഏവിയേഷൻ സെക്രട്ടറിയെ കണ്ട് ആവശ്യപ്പെട്ടു

പിമാരായ കെ സുധാകരൻ കെ മുരളീധരൻ കെ കെ രാഗേഷ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് സെക്രട്ടറിക്ക് നിവേദനം നൽകിയത് രദ്ദേഷ്ടങ കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കെതിരെ കോൺഗ്രസ് ന്യൂഡൽഹിയിൽ ഇന്ന് ഭാരത് ബച്ചാവോ റാലി സംഘടിപ്പിക്കും പൌരത്വ ഭേദഗതി ബിൽ സാമ്പ ത്തിക മാന്ദ്യം തൊഴിലില്ലായ്മ കാർഷിക വൃവസായ മേഖലകളുടെ തകർച്ച അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റും തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ച് സംഘടിപ്പിക്കുന്ന റാലിയിൽ സോണിയഗാന്ധി രാഹുൽഗാന്ധി ഡോക്ടർ മൻമോഹൻ സിംഗ് തുടങ്ങി പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും

പാർട്ടി നേതാവ് ജയറാം രമേശാണ് ഹർജി നൽകിയത് രുട്ട്ട്ട്ട്ട്ട്ട്ട പൌരത്വ നിയമഭേദഗതി ബിൽ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധവും സത്യപ്രതി ജ്ഞാലംഘനവുമാണെന്ന് ബി

പി ദേശീയ നിർവ്വാഹകസമിതി അംഗം പി കെ കൃഷ്ണദാസ് കോഴിക്കോട്ട് പറഞ്ഞു പൌരത്വബിൽ കേരളത്തിൽ ന ടപ്പാക്കില്ലെന്ന് പറയുമ്പോൾ കേരളത്തെ സ്വതന്ത്രപരമാധികാര റിപ്പബ്ലിക്കായി മാറ്റാനാണ് മുഖ്യമന്ത്രിയും സി

എമ്മും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു

കാലത്തിന്റെ മാറ്റം ഉൾക്കൊള്ളാനാ വാത്ത ഒരു കടത്തുകാരന്റെ ജീവിതമാണ് ചിത്രത്തിന്റെ പ്രമേയം പ്രേക്ഷക പ്രീതി നേടിയ ചിത്രമായി ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ജെല്ലിക്കെട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു മികച്ച സംവിധായകനുള്ള രജതചകോരം പാക്കരറ്റ് ചിത്രത്തിന്റെ സംവിധായകൻ അലൻ ഡെബേർട്ടനാണ് മികച്ച നവാ ഗത സംവിധായകനുള്ള രജതചകോരം സ്പാനിഷ് ചിത്രമായ അവർ മദേ ഴ്സിന്റെ സംവിധായകൻ സീസർ ഡയസ് നേടി മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി രാജ്യാന്തര പുരസ്കാരത്തിന് ബോറിസ് ലോജ്കെയ്ൻ സംവിധാനം ചെയ്ത കാമിലും ഈ വിഭാഗത്തിലെ മികച്ച മലയാള ചിത്രമായി സന്തോഷ് മണ്ടൂർ സംവിധാനം ചെയ്ത പനിയും തെരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യയിലെ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ഫാഹിം ഇർഷാദിനാണ്

മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാ രവും ആനിമാനിക്കാണ് മേളയിലെ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത വെയിൽമരങ്ങൾ നേടി നെറ്റ്പാക് പ്രത്യേക ജൂറി പരാമർശത്തിന് മധു സി നാരായണൻ സംവി ധാനം ചെയ്ത കുമ്പളങ്ങി നൈറ്റ്സ് അർഹമായി രദ്ദേഷ്ടങ വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ നിലപാടുകളുടെ പേരിലാണ് ലോകത്തെ സാംസ്കാരിക രാഷ്ട്രീയ ഭൂപടത്തിൽ കേരള രാജ്യാന്തര ചലച്ചിത്ര മേള ഇടം നേടിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

അടിച്ചമർത്തപ്പെട്ടവർക്കും പീഡി തർക്കും ഒപ്പമാണ് ഈ മേള എന്നും നിലകൊണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ഫെർണാണ്ടോ സോളാനസിന് ആജീവനാന്ത സംഭാവനയ്ക്ക് പുര സ്കാരം മുഖ്യമന്ത്രി സമ്മാനിച്ചു

കൊല്ലം ചിറക്കര ഗ്രാമ പഞ്ചായത്തിലെ ജലവിതരണ ശൃംഖലയുടെ വിപുലീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ദർവ്പ്പെടെ ഒര നിയന്ത്രണങ്ങളില്ലാതെ കർഷകർ ഉത്പാദിപ്പിക്കുന്ന മുഴുവൻ പാലും സം ഭരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കെ രാജു പറഞ്ഞു മലമ്പുഴയി ലെ നവീകരിച്ച മിൽമ കാലിത്തീറ്റ ഫാക്ടറിയുടെ ഉദ്ഘാടനം നിർവ്വഹിക്കു കയായിരുന്നു മന്ത്രി

രുട്ട്ട്ട്ട്ട്ട്ട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിതകേരളം മിഷൻ സംഘടിപ്പിക്കുന്ന ഇനി ഞാനൊഴുകട്ടെ നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും

എൻ സീമ തിരുവനന്തപുരത്ത് അറി യിച്ചു

സി മത്സരം സമനിലയിൽ പിരിഞ്ഞു മത്സരത്തിൽ ഇരു ടീമുകളും രണ്ടുഗോൾ വീതം നേടി ലീഗിൽ ഏഴുപോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് ഏഴാംസ്ഥാനത്താണ് രുട്ട്ട്ട്ട്ട്ട്ട്ട പഞ്ചാബിലെ സംഗ്രൂരിൽ ദേശീയ സ്കൂൾ സീനിയർ മീറ്റിൽ ട്രിപ്പിൾ ജംപിൽ കേരളത്തിന്റെ ആകാശ് എം വർഗീസിന് സ്വർണം മീറ്റിൽ കേരള ത്തിന്റെ രണ്ടാം സ്വർണമാണിത്

പോയിന്റ് നിലയിൽ ഹരിയാനയാണ് മുന്നിൽ കേരളം മൂന്നാം സ്ഥാനത്താണ്

അമേരിക്ക രണ്ടാം സ്ഥാനവും സിങ്കപ്പൂർ മൂന്നാം സ്ഥാനവും നേടി

സമാപന സമ്മേളനം വൈകീട്ട് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെ യ്യും രുമാണ്ട് ദേശ പാലക്കാട് ജില്ലാ കേരളോത്സവം ഇന്ന് രാവിലെ മുണ്ടൂരിൽ മന്ത്രി എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്യും ഇന്നലെ കായികമത്സരങ്ങളോടെയാണ് കേര ളോത്സവത്തിന് തുടക്കമായത്

ദർവ്വെട്ടറ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തൃശൂരിൽ വിവിധ പരിപാടിക ളിൽ പങ്കെടുക്കും വൈകീട്ട് പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമ്മേ ളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും കേരള പ്രവാസി ക്ഷേമബോർഡ് പ്രവാസി ഡിവിഡന്റ് പദ്ധതിയുടെ ഉദ്ഘാടനം തേക്കിൻകാട് മൈതാനിയിൽ മുഖ്യമന്ത്രി നിർവഹിക്കും തൃശൂർ കോർപ്പറേഷന്റെയും വ്യാപാരി സമൂഹ ത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഹാപ്പി ഡേയ്സ് തൃശൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവലും തേക്കിൻകാട് മൈതാനിയിൽ മുഖ്യമന്ത്രി ട ഉദ്ഘാടനം ചെയ്യും രുട്ടിട്ട്ട്ട്ട്ട്ട തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും വൈദ്യുത തടസ്സമുണ്ടാ യാൽ മിനിട്ടുകൾക്കുള്ളിൽ സ്ഥലം തിരിച്ചറിഞ്ഞ് പരിഹാരം കാണാനായി വൈദ്യുത ഭവനിൽ സ്കാഡ ഡിസ്ട്രിബ്യൂഷൻ കൺട്രോൾ സെന്റർ പ്രവർത്തനമാരംഭിച്ചു മന്ത്രി എം എം മണി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാ നത്തെ വൈദ്യുതരംഗം ആധുനീകരിക്കാനും വിതരണ ശൃംഖല ശക്തിപ്പെ ടുത്താനും ശ്രമങ്ങൾ നടന്നുവരികയാണെന്ന് മന്ത്രി പറഞ്ഞു രുട്ടിട്ടിടു സംസ്ഥാനത്ത് ഭൂമി കൈമാറ്റം നടത്തുമ്പോൾ പ്പോക്കുവരവ് തത്സമയം നടത്താൻ റവന്യൂ സർവേ റജിസ്ട്രേഷൻ വകുപ്പുകളുടെ സംയോജനത്തോ ടെ നടപടി അവസാന ഘട്ടത്തിലാണെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു കൊയിലാണ്ടി താലൂക്ക് ഇ ഓഫിസ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരു ന്നു മന്ത്രി കൈമാറ്റം ചെയ്യുന്ന ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അതിരുകൾ തി രിച്ച് പ്ലാൻ സ്കെച്ച് സഹിതം റജിസ്ട്രേഷൻ നടത്തി പോക്കുവരവിന് അനു യോജ്യമായ വിധത്തിൽ റവന്യൂവകുപ്പിന് കൈമാറണമെന്നും ഇത് വേഗ ത്തിൽ കാര്യങ്ങൾ നടപ്പാക്കാൻ സഹായകരമാകുമെന്നും മന്ത്രി പറഞ്ഞു രുമെട്ടറു സംസ്ഥാനത്ത് അർഹരായ എല്ലാവർക്കും ഭൂമി പതിച്ചു നൽകി പട്ടയം അനുവദിക്കുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു കോഴിക്കോട്ട് സർവെ ഫീൽഡ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമാ യി ഭൂപരിഷ്കരണാനന്തര റീസർവേയും അനുബന്ധ വിഷയങ്ങളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ് ഘാടനം ചെയ്തു ഒന്നര കോടി രൂപ് ചെലവിട്ടാണ് തത്സമയ വായു ഗുണ നിലവാര പരിശോധനാ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് രുട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട പാലിയേക്കര ടോൾ പ്ലാസയിൽ നാളെ മുതൽ ഫാസ്ടാഗ് സമ്പ്രദായം നിർബന്ധമാക്കുന്ന സാഹചര്യത്തിൽ പകരം സംവിധാനമൊരുക്കുന്നതുവരെ തൽസ്ഥിതി തുടരുമെന്ന് തൃശൂർ ജില്ലാ കലക്ടർ എസ് ഷാനവാസ് അറിയി ച്ചു ഫാസ്ടാഗിലേക്ക് പൂർണമായും മാറുന്നതുവരെ നിലവിലെ രീതിപ്രകാരം വാഹനങ്ങൾക്ക് കടന്നുപോകാമെന്നും കലക്ടർ പറഞ്ഞു

എസ് സംസ്ഥാന കമ്മിറ്റി മലപ്പുറത്ത് നടത്തിയ പൌരാ വകാശ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ടി ഇന്റലിജൻസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കേന്ദ്രമാ യി പ്രവർത്തിക്കുന്ന ഒരു ജല്ലറിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഏകദേശം രണ്ടാ യിരം കിലോ സ്വർണം ജി

ടി അടയ്ക്കാതെ വിറ്റതായി കണ്ടെത്തി